പ്താസ്മ തെറാപ്പി കൊറോണയ്ക്കുള്ള ചികിത്സയ്ക്കായി ഉപയോഗിക്കരുതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

അന്തർ സംസ്ഥാന ആതിർത്തികളിൽ കുടുങ്ങിക്കിടക്കുന്ന ന് ചരക്ക് ലോറികളുട്ടെ ഗ്ത്രാഗതം സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം

സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിനായി പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി

വൈറസ് വ്യാപനം അവസാനിച്ചിട്ടില്ലെന്ന് മുന്നറിയിപ്പുമായി ലോകാരോഗൃ സംഘടന

പ്സാസ്മ തെറാപ്പി സംബന്ധിച്ച് പരീക്ഷണങ്ങൾ ഇത് കൊറോണയ്ക്കായുള്ള ചികിത്സയായി ഉപയോഗിക്കാമെന്നതിന് ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

സി എം ആർ പഠനം പൂർത്തിയാക്കി ശാസ്ത്രീയമായ തെളിവുകൾ ലഭ്യമാക്കുന്നതുവരെ പ്ലാസ്മ തെറാപ്പി ഗവേഷണത്തിനോ പരീക്ഷണ ആവശ്യത്തിനോ മാത്രമേ ഉപയോഗിക്കാവു എന്നും അദ്ദേഹം വ്യക്തമാക്കി

ദുരന്തം വിതച്ച ആരോഗൃ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ഇന്തോനേഷ്യയിലേയ്ക്ക് അവശ്യ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കിയതിന് പ്രസിഡന്റ് നന്ദി അറിയിച്ചു ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ ഇന്ത്യ പരമാവധി ശ്രമം നടത്തുമെന്ന് ശ്രീ മോദി ഉറപ്പ് നൽകി

കോവിഡ് വ്യാപനം തടയുന്നതിനായി ഈ ജില്ലകളിലാണ് സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

ഇതുസംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി നിർദ്ദേശം നൽകി ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനാണ് നടപടിയെന്ന് ഗതാഗത മന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചേർന്ന യോഗത്തിൽ മന്ത്രി പറഞ്ഞു ലോക് ഡൌൺ കാലത്ത് ജനജീവിതം സാധാരണമാക്കുന്നതിന് ചരക്ക് നീക്കം അനിവാര്യമാണെന്നും ശ്രീ

പാവപ്പെട്ടവരും സാമ്പത്തികമായി ദുർബലരുമായ വിഭാഗങ്ങൾക്ക് സാമൂഹ്യ പരിരക്ഷയ്ക്കും രോഗപ്രതിരോധത്തി നുമുള്ള അടിയന്തര നടപടിക്കായാണ് വായ്പ അനുവദിച്ചത്

മറ്റു സംസ്ഥാനങ്ങളിൽനിന്ന് കേരളത്തിലേക്ക് വരുന്ന ആളുകൾക്ക് സൂക്ഷ്മമായ ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ജീവനക്കാരുടെ ശമ്പളം മാറ്റി വെയ്ക്കുന്നത് അത് നിരസ്സിക്കുന്നതിന് തുല്യമാണെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി പ്രത്യേക ഉത്തരവിലൂടെ ശമ്പളം പിടിച്ചു വെയ്ക്കാനാവില്ലെന്ന് പറഞ്ഞു

രോഗബാധിതർ രണ്ട് ലക്ഷത്തോടടുക്കുന്നു

എ

എ ഇ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

ദരിദ്രരാജ്യങ്ങളിലെ കുട്ടികളുടെ ചിക്ടിച്ച് യുൾപ്പെടെ സാധാരണ ആരോഗ്യ സേവനങ്ങളെ രോഗ്പ്യാപ്നം തടസപ്പെടുത്തുക യാണെന്നും ഡബ്ല്യൂ

ആഫ്രിക്ക ഈസ്റ്റേൺ യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക് ട്ട് ചില ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ വർധിച്ചുപ്പ്രൂന്ന കോവിഡ് കേസുകളും മരണവും സംബന്ധിച്ച് ലോകാര്യോഗ്യും സംഘടന ഡയറക്ടർ ആശങ്ക പ്രകടിപ്പിച്ചു